ധനകാരൃ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികളുമായി വൈകിട്ട് ആശയവിനിമയം നടത്തും

ഉച്ച്യോടെ അംബാല വ്യോമ താവളത്തിൽ അഞ്ച് വിമാനങ്ങൾ എത്തിച്ചേരും

ച്ചിക്ടിത്സയിലുള്ളത് അഞ്ചുലക്ഷം പേർ കേരളത്തിൽ സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധ ഉയരുന്നു

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മൌറീഷൃസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജഗ്നൌത്തും ചേർന്ന് നാളെ ഉദ്ഘാടനം ചെയ്യും

കേരളത്തിൽ കാലവർഷം വീണ്ടും സജീവം

തീരപ്രദേശങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യത മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്

വായ്പകളും മറ്റ് ബാങ്കിങ് സേവനങ്ങളും കാര്യക്ഷമമായി ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ സാങ്കേതികവിദ്യയിലൂടെയുള്ള സാമ്പത്തിക ശാക്തീകരണം സാമ്പത്തിക മേഖലയുടെ സുസ്ഥിരതയ്ക്കാ യുള്ള വിവേകപൂർണമായ നടപടികൾ എന്നിവ അജണ്ടയിലുണ്ട് അടിസ്ഥാന സൌകര്യ മേഖല കൃഷി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവ്രയിലൂടെയുള്ള പ്രാദേശിക ഉൽപ്പാദനം എന്നിവ ഇന്ത്യയുടെട്ട് സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുന്ന തർത്തിൽ ക്രമീകരിക്കുന്നതിൽ ബാങ്കിംഗ് മേഖ്ല് സുപ്രധാന പങ്കാണ് വഹിക്കുന്നത്

ഫ്രഞ്ച് വ്യോമയാന കമ്പനിയായ ദസ്സോ നിർമ്മിച്ച യുദ്ധവിമാനങ്ങൾ തിങ്കളാഴ്ച തെക്കൻ ഫ്രാൻസിലെ മെറിഗ്നാക് എയർ ബേസിൽ നിന്ന് പറന്നുയർന്നു

എ ഇ ൽ മാത്രമാണ് വിമാനം ഇറങ്ങുക

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇ കിറ്റ് മാസ്ക് എന്നിവ സംബന്ധിച്ച കയറ്റുമതി നയത്തിൽ കേന്ദ്രസർക്കാർ ഭേദഗതി വരുത്തി ഇതനുസരിച്ച് സർജിക്കൽ മാസ്കുകൾ മെഡിക്കൽ ഗ്ലാസ്സ് ഉപകരണങ്ങൾ എന്നിവ നിയന്ത്രണങ്ങളോടെ കയറ്റുമതി ചെയ്യുന്നതിന് അനുമതി നൽകി രണ്ടും മൂന്നും പാളികളുള്ള മാസ്കുകളുടെ പ്രതിമാസ കയറ്റുമതി പരിധി നാല് കോടിയായി നിജപ്പെടുത്തി മുഖകവചത്തിന്റെ കയറ്റുമതിയിൽ ഏർപ്പെടുത്തിയിരുന്ന നിരോധനം നീക്കിയിട്ടുണ്ട്

രാജ്യത്തെ വനം പരിസ്ഥിതി ഉദ്യോഗസ്ഥർക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കർ അഭിവാദ്യം അർപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വിഭാവനം ചെയ്ത ആത്മ നിർഭരതയ്ക്ക് ഉത്തമ ഉദാഹരണമാണ് രാജ്യത്തെ കടുവ സംരക്ഷണ പദ്ധതികളെന്ന് ആഗോള കടുവ ദിനത്തിൽ നൽകിയ സന്ദേശത്തിൽ മന്ത്രി പറഞ്ഞു

ഇരുരാജ്യങ്ങളിലെയും പ്രമുഖ നേതാക്കളുട്ട സാന്നിധ്യത്തിൽ വീഡിയോ കോൺഫറൻസിങ്ങിലൂട്ടെയാ്ണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ഇന്ത്യയുട്ട് ധിനസഹായത്തോടെയാണ് കോടതി മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്

ഓഗസ്റ്റ് അഞ്ചിന് അയോധ്യയിൽ നടക്കുന്ന രാമക്ഷേത്രനിർമാണത്തിനായുള്ള ഭൂമി പൂജയിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പങ്കെടുക്കും

സംസ്ഥാനത്തെ പുണ്യസ്ഥലങ്ങളിൽ നിന്നുള്ള മണ്ണും ജലവും അയോദ്ധ്യയിലേക്ക് അയയ്ക്കുന്ന ചടങ്ങുകളും പുരോഗമിക്കുകയാണ് ഗംഗ യമുന സരസ്വതി എന്നീ പുണ്യ നദികളുടെ സംഗമസ്ഥാനത്തു നിന്നുള്ള മണ്ണും ജലവും ഇന്ന് അയോധ്യയിലേക്ക് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി അയക്കുമെന്ന് ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു ശ്രീകൃഷ്ണന്റെ നഗരമായ മഥുരയിലെ ജനങ്ങൾ വെള്ളികൊണ്ടുള്ള പ്രത്യേക ഇഷ്ടികയുടെ പൂജ നടത്തി

പി ഹേമമാലിനി ഓൺലൈനിലൂടെ പരിപാടിയിൽ പങ്കെടുത്തു നഗരത്തിലെ നിരവധി തീർത്ഥങ്ങളിലെ പുണ്യ ജലത്തോടൊപ്പം ഇഷ്ടിക അയോധ്യയിലേക്ക് അയയ്ക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഉറവിടം കണ്ടെത്താത്ത രോഗിക്ളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്

മണിയൂർ സ്വദേശിക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്

മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതി എന്ന പേരിലാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്

തീരത്ത് ഇന്ന് ശക്തിയായ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു

ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴ ഇപ്പോഴും ശക്തിയായി തുടരുകയാണ് ജില്ലയുടെ മറ്റ് ഭാഗങ്ങളിലും കിഴക്കൻ മലയോര പ്രദേശങ്ങളിലും കനത്ത മഴയാണ്

കോട്ടയത്ത് റെയിൽ പാളത്തിൽ മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം തടസപ്പെട്ടു നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും റോഡിൽ വെള്ളം കയറിയും മണ്ണിടിഞ്ഞു വീണും ഗതാഗതം തടസപ്പെട്ടിട്ടുണ്ട്

ഗന്ധക് കോസി ശ്ബ്രാഗ്മതി എന്നീ നദികളിലെ ജലനിരപ്പ് അപകടരേഖ്യ്ക്ക് മുകളിലാണ്